മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് രാജിവച്ചു നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന സുപ്രീം കോടതി വിധിയ്ക്കു പിന്നാലെയാണ് രാജി

ട്രാൻസ്ജെൻഡർ വൃക്തികളുട്ടെ ആപ്കാശ സംരക്ഷണ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം

ഏറ്റവും മതേതരമായ ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ശബരിമലയിലെ സമാധാനപരമായ തീർത്ഥാടന കാലത്തെ അലങ്കോലപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ

യുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹം കാർട്ടോസാറ്റ് ദ നാളെ വിക്ഷേപിക്കും

ഇന്ന് വൈകുന്നേരം ഗവർണർ ഭഗത്സിംഗ് കോഷിയാരിയെ കണ്ടാണ് രാജിക്കത്ത് നൽകിയത് ഉപമുഖ്യമന്ത്രിയും എൻസിപി നേതാവുമായ അജിത് പവാർ രാജിവെച്ചതോടെ തന്റെ ഗവൺമെന്റിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതായി മുംബൈയിൽ നടന്ന് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചു ബിജെപി കുതിരക്കച്ചവടത്തിൽ ഏർപ്പെടില്ലെന്നും ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി

ജസ്റ്റിസ് എൻ വി ്രമണ അധ്യക്ഷനായ ബഞ്ചാണ് വിശ്വാസ ് വോട്ടെടുപ്പിന് ഉത്തർപ്പിട്ടത് രഹസ്യ ബാലറ്റ് പാടില്ലെന്നും സുതാര്യമായ വോട്ടെടുപ്പ് വേണമെന്നും കോടതി നിർദ്ദേശിച്ചു നിയമസഭാ നടപടികൾ ത്ത്സ്മയം സംപ്രേക്ഷണം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത് വോയിസ് ട്രാൻസ്ജൻഡർ അവകാശ സംരക്ഷണ ബിൽ ശബ്ദവോട്ടോടെയാണ് ഇന്ന് രാജ്യസഭയിൽ പാസ്സായത് ബിൽ ലോക്സഭ നേരത്തെ പാസ്റ്റാക്കിയിരുന്നു ജനനസമയത്ത് രേഖപ്പെടുത്തിയതിൽ നിന്നും ലിംഗ വ്യത്യാസം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ ട്രാൻസ്ജെൻഡർ എന്ന വിഭാഗത്തിൽപ്പെടുത്താൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ട്രാൻസ്ജൻഡർ വ്യക്തികൾക്ക് സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കാനും ഇവരെ കുടുംബത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്താനുമുള്ള വ്യവസ്ഥകൾ നിയമത്തിലുണ്ട് സേവനം വിദ്യാഭ്യാസം തൊഴിൽ ആരോഗ്യം പൌരാവകാശങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും ട്രാൻസ്ജൻഡർ വൃക്തികൾ നേരിടുന്ന വിവേചനം അവസാനിപ്പിക്കാൻ ബില്ലിൽ വ്യവസ്ഥകളുണ്ട് തൊഴിലവസരങ്ങളിൽ ഇവർക്ക് തുല്യത ഉറപ്പുവരുത്താൻ ഗവൺമെന്റിനും സ്വകാര്യ തൊഴിൽദാതാക്കൾക്കും ബില്ലിലൂടെ ബാധ്യതയുണ്ടാകും ന്യൂസ് ഡെസ്ക് ആകാശവാണി

ച്ച് ഇതോടെ അഹമ്മദാബാദിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനമായി മാറി അതോടൊപ്പം ആന്ധ്രപ്രദേശ് മധ്യപ്രദേശ് ആസ്സം ഹരിയാന എന്നിവിടങ്ങളിലെ നാഷണൽ ഡിസൈൻ കൈവന്നു

കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നഗർ ഹവേലിയും ദമൻ ദിയുവും കൂട്ടിയോജിപ്പിക്കുകയാണ് ബില്ലിലൂടെ ലക്ഷ്യമിടുന്നത് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും പൌരന്മാർക്ക് മികച്ച സേവനങ്ങൾ ഇതിലൂടെ നൽകാനാകുമെന്നാണ് കണക്കാക്കുന്നത് രാജ്യത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം ഇതോടെ എട്ടായി കുറയും

മുമ്പ് മൂന്നു മാസമായിരുന്ന കാലാവധിയാണ് ഇപ്പോൾ ഒരു വർഷമായി ദീർഘിപ്പിച്ചത് മൂന്നു സേനാ വിഭാഗങ്ങളിലും പെട്ട സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് ഈ സൌകര്യം ലഭിക്കും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗാണ് തീരുമാനത്തിന് അംഗീകാരം നൽകിയത് ദീർഘകാലമായി സൈനികർ ഉയർത്തി വന്നിരുന്ന ആവശ്യത്തിനാണ് ഇതോടെ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്

രാവിലെ കൊച്ചിയിലെത്തിയ ഇവർ സംരക്ഷണം ആവിശ്യപ്പെട്ട് സിറ്റി പൊലീസ് കമ്മീഷ്ണറെ സമീപിച്ചിരുന്നു

അതിനിടെ തൃപ്തി ദേശായിയുടെ സംഘത്തിലുണ്ടായിരുന്ന ബിന്ദുഅമ്മിണിക്ക് നേരെ മുളക് സ്പ്രേ പ്രയോഗിച്ചു സംഭവത്തിൽ പ്പനിതാകമ്മീഷൻ ഇടപെട്ടു

ഇതിന്റെ പിന്നിൽ കൃത്യമായ തിരക്കഥയും അജണ്ടയും ഉണ്ടെന്ന് കരുതുന്നതിൽ തെറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് പാർലമെന്റിന്റെ ഇരു് സഭകളും സംയുക്ത സമ്മേളനം ചേർന്നു അവകാശങ്ങളും ചുമതലകളും ഒരേ നാണയത്തിന്റെ ഇരു വശങ്ങളാണെന്ന് പൌരന്മാർ തിരിച്ചറിയണമെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു കൊണ്ട് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ഭരണഘടനയുടെ ശക്തിയെക്കുറിച്ചും സമഗ്രതയെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസ്ംഗത്തിൽ പ്രതിപാദിച്ചു ഭരണഘടന വിഭാവനം ചെയ്യുന്ന ചുമത്ല രാജ്യത്തെ പൌരൻമാർ നിറവേറ്റുന്നുണ്ടോ എന്ന് ഉറപ്പുപ്രുത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു

എൽ വി

എസ് ആർ ഒ നടത്തുന്ന ആദ്യ വിക്ഷേപണമാണിത്

ലോക ക്ഷീര ദിനം ജൂൺ ഒന്നിനാണെങ്കിലും ഇന്ത്യയിൽ അത് ഈ ദിനമാണ് ആഘോഷിക്കുന്നത് ഇന്ത്യൻ ക്ഷീര മേഖല വളരെ വലിയ പുരോഗതി കൈവരിച്ചതിനു പിന്നിൽ ഡോക്ടർ കുര്യന്റെ കഠിന പ്രയത്നങ്ങളാണുള്ളത്

ജനപ്രിയ നെറ്റ്ഫ്ളിക്സ് സീരീസ്ടായ നർക്കോസിലെ കൊളംബിയൻ മയക്കുമരുന്ന് രാജാവായ പാബ്ലോ എസ്കബാറിനെ അവതരിപ്പിച്ച വാഗ്ന മൌറയുടെ സാന്നിധ്യം മേളയിൽ ശ്രദ്ധേയമായി വാഗ്ന ്മൌറയുടെ കന്നിച്ചിത്രം മരിഗെല്ല ഇന്ന് മേളയിൽ പ്രദർശിപ്പിച്ചു അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലാണ് മ്രിഗെല്ല ഉൾപ്പെട്ടിരിക്കുന്നത് ബ്രസീലിയൻ രാഷ്ട്രീയ നേതാവും ഗൊറില്ല പോരാളിയുമായ കാർലോസ് മരിഗെല്ലയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചിത്രം

ഇരു രാജ്യങ്ങളും ജനാധിപത്യം സംബന്ധിച്ച് ഒരേ തത്വമാണ് പിന്തുടരുന്നത് ഭരണഘടനാ ദിനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹൂ നൽകിയ ആശംസയ്ക്ക് മറുപടിയായാണ് പ്രധാനമന്ത്രി ഇക്കാര്യം ടിറ്ററിൽ കുറിച്ചത് ഇന്ത്യൻ ഭരണഘടന രാജ്യത്തിന്റെ സമ്പുഷ്ടമായ ചരിത്രത്തെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു

സുരക്ഷാകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കാലാവധി നീട്ടാൻ തീരുമാനിച്ചത്

ജനാധിപത്യത്തിന്റെ ആഘോഷദിന്റ്മായ് ്ഇന്നേ ദിവസം വസുധൈവ കുടുംബകം അഥവാ ലോകം ഒരു കുടുംബം എന്ന ഭാരതീയ ദർശനത്തിന് തുരങ്കംവെയ്ക്കാനാണ് ഭീകരവാദികൾ ശ്രമിച്ചതെന്ന് വേദനയോടെ സ്മരിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു

ഇതിനിടെ നിയമസഭ തെരഞ്ഞെടുപ്പിനുള്ള ആറാം സ്ഥാനാർത്ഥി പട്ടിക ഝാർഖണ്ഡ് മുക്തിമോർച്ച പുറത്തിറക്കി